ജമ്മുകാശ്മീരിലെ ബുദ്ഗാം ജില്ലയിൽ സുരക്ഷാസേന ഒരു ഭീകരനെ വധിച്ചു

മത്സരം വൈകിട്ട് മൂന്ന് മണിക്ക് ബെർമിങ്ഗാമിൽ

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻകി ബാത്തിലാണ് രാജ്യം നേരിടുന്ന ജലദൌർലഭൃം അഭിമുഖീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ ക്കുറിച്ച് ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ശ്രീ നരേന്ദ്രമോദി രണ്ടാമതും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റശേഷമുള്ള ആദ്യ മൻകി ബാത് പരിപാടിയിരുന്നു ഇന്നത്തേത്

രാജ്യത്തെ പ്രശ്നങ്ങളെപ്പോലെ ജനങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും കൊണ്ട് ജലക്ഷാമത്തിനും പരിഹാരം കാണേണ്ടതുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് പൊതുസമൂഹത്തി നിടയിൽ സംവദിക്കുന്ന തോടൊപ്പം ജലസംരക്ഷണ രീതികൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഗവൺമെന്റ് രൂപംകൊടുത്ത ജലശക്തി മന്ത്രാലയത്തിന്റെ പ്രാധാന്യം ഈ സാഹചരൃത്തിൽ വളരെ വലുതാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി

ബാത്ത് പുനരാരംഭിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപസംഹരിച്ചത്

ഇടനാഴി ഉടൻ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിച്ചാണ് ഇന്ത്യ പാകിസ്ഥാനു മുന്നിൽ പുതിയ തീയതി നിർദ്ദേശിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയ്ക്ക് അറിയിച്ചു കർത്താപ്പൂർ ഇടനാഴി സംബന്ധിച്ച് പാകിസ്ഥാൻ ട്രിക്കിട്ടോഗിച്ച കമ്മിറ്റിയിൽ ഖാലിസ്ഥാൻ വിഘടനവാദി ഉൾപ്പെട്ടതിൽ ഇന്ത്യ നേരത്തെ ആശങ്ക അറിയിച്ചിരുന്നു കൂടാതെ പ്പദ്ധതി സംബന്ധിച്ച വൃവസ്ഥകളിൽ കൂടുതൽ വൃക്തത വരുത്ത്യിനും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ഇതേതുടർന്നാണ് ചർച്ചയ്ക്കായി പുതിയ തീയതി നിർദ്ദേശിച്ചത്

ചദോരയിൽ സുരക്ഷാസേനയും പോലീസും നടത്തിയ സംയുക്ത തെരച്ചിലിലാണ് ഭീകരനെ വധിച്ചതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആകാശവാണിയോട് പറഞ്ഞു തെരച്ചിലിനിടയിൽ ഭീകരർ സുരക്ഷാസേനയ്ക്കുനേരെ വെടിയുതിർക്കുകയായിരുന്നു ഭീകരനെ തിരിച്ചറിഞ്ഞിട്ടില്ല

സ്വന്തം താല്പര്യങ്ങൾ അതേരീതിയിൽ പ്രകടിപ്പിക്കേണ്ട ഒരിടമല്ല പോലീസ് സേന എന്നും അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ രാമവർമ്മപുരം പോലീസ് അക്കാഡമിയിൽ ആദ്യ കോസ്റ്റൽ പോലീസ് വാർഡന്മാരുടെ പ്പരേഡ് സ്വീകരിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ലോക്കപ്പ് കസ്റ്റഡിമരണങ്ങൾ ളൂൾപ്പെടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ യാദൃശ്ചികമാണ് എന്ന് കരുത്യിൻ ക്ഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തെറ്റ് ചെയ്താൽ കർക്കൾ നട്ടപടി എന്നതാണ് ഗവൺമെന്റ് നയം

ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും ഗവൺമെന്റ് ക്രൂശിക്കില്ല പോലീസിന് മാനുഷികമുഖം നൽകാനാണ് ഗവൺമെന്റ് ശ്രമം ചിലർ അതില്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കേന്ദ്ര സംസ്ഥാന സായുധ സേനയുടെ സേവനം തീർത്ഥാടകരുടെ വാഹനം കടന്നുപോകുന്ന ഇടങ്ങളിൽ ഉറപ്പുവരുത്തിയതായി സി ആർ

എഫ് ഇൻസ്പെക്ടർ ജനറൽ എ

കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നും കമ്മിറ്റി അന്വേഷിക്കും

ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് നിർമ്മാണ കമ്പനികളിലെ ഡയറക്ടർമാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കുകയും രണ്ട് പേരെ പോലീസ് അറസ്റ്റുചെയ്യുകയും ചെയ്തിട്ടുണ്ട്

അമേരിക്കൻ കാർഷിക ഉത്പന്നങ്ങൾ വാങ്ങാൻ ചൈനയും തീരുമാനിച്ചിട്ടുണ്ട് ഹുവായ് കമ്പ നിയുമായി വ്യാപാര ബന്ധം നടത്താൻ യു

കമ്പനികളെ അനു വദിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു

ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മണിക്ക് ബെർമിങ്ഗാമിലാണ് മത്സരം പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യയ്ക്ക് സെമി ബർത്ത് ഉറപ്പിക്കാൻ ഈ മത്സരത്തിലെ വിജയം എന്നാൽ ഇംഗ്ലണ്ടിനാകട്ടെ സെമിയിലെത്താൻ അനിവാര്യമാണ്

ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ആദ്യമായി നീല ജേഴ്സിക്കുപകരം ഓറഞ്ച് ജേഴ്സി അണിഞ്ഞാണ് മത്സരത്തിനിറങ്ങളുന്നത്

ഇന്നലെ നടന്ന മത്സ രങ്ങളിൽ അഫ്ഗാനിസ്ഥാനെ പാക്കിസ്ഥാനും ന്യൂസ്ലന്റിനെ ആസ്ട്രേലിയയും പരാജയപ്പെടുത്തിയിരുന്നു

ഉറുഗ്വേയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നാണ് പെറു വിന്റെ മുന്നേറ്റം

ബുധനാഴ്ച പുലർച്ചെ ആറ് മണിക്കാണ് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ബ്രസീൽ അർജന്റീന്റ് സ്മി മത്സരം

ആവേശകരമായ കാർട്ടർ പോരാട്ടത്തിൽ ജർമനിയെ തോൽപ്പിച്ച് സ്വീഡൻ സെമിയിൽ കടന്നു ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്കാണ് സ്വീഡിഷ് പെൺപടയുടെ വിജയം